ഇന്ത്യ മാതൃകയെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

ദക്ഷിണ ചൈനാക്കടലിലെ ചൈനയുടെ കടന്നു കയറ്റത്തിൽ ഫിലിപ്പൈൻസ് പ്രതിഷേധിച്ചു

ഒഡീഷ ത്രിദിന സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഇന്ന് രാഷ്ട്രപതി പുരിയിലെ ശ്രീമന്ദിർ സന്ദർശിച്ചു

നവംബർ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ നടന്ന പരിപാടിയിൽ കേന്ദ്ര ജൽശക്തി മന്ത്രിയും മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും മുഖ്യമന്ത്രിമാരും പങ്കെടു ത്തു ഇരുസംസ്ഥാനനങ്ങളും തമ്മിലുള്ള കെൻ ബെത്വ നദീസംയോജന കരാറിലും ഒപ്പുവെച്ചു

സാമ്പത്തിക അടിസ്ഥാന സൌകര്യത്തിനും വികസനത്തിനുമുള്ള ് ബാങ്ക് ബോണ്ടുകളിലൂടെയും മറ്റും ധനസമാഹരണം നടത്തും ധനകാര്യ ബിൽ ഡൽഹി ദേശീയ നഗരപ്രദേശ ബിൽ എന്നിവയും ധനമന്ത്രി ഇന്ന് അവതരിപ്പിക്കും അതിനിടെ അംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ ഉച്ചയ്ക്ക് രണ്ട് മണി വരെ നിർത്തിവച്ചു മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖിനെതിരെയുള്ള ആരോപണങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു ബഹളം

അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ആകുന്നതോടെ ചിഹ്നം അനുവദിക്കാനുള്ള നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കും മത്സരാർത്ഥികളുടെ അന്തിമചിത്രം ഇന്ന് തെളിയുന്നതോടെ പ്രചാരണം നാളെ മുതൽ കൂടുതൽ ഊർജിതമാകും

അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജനങ്ങൾ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

വിശദവിവരങ്ങളുമായി ആതിരാബാലൻ വോയ്സ് തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുളള സമയപരിധി ഇന്നവസാനിക്കും

നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കന്യാകുമാരി ലോകസഭാ മണ്ഡലത്തിലും പ്രചരണം സജീവമായി

ഭരണകക്ഷിയായ എ ഐ എ ഡി എം കെയും ഡി എം കെയും തമ്മിലാണ് പ്രധാന പോരാട്ടം

ഡി എം കെ ചേരിയിലാണ് കോൺഗ്രസ് എല്ലാ മുന്നണികളുടെയും ദേശീയസംസ്ഥാന നേതാക്കൾ ഗ്രാമഗ്രാമാന്തരങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ സജീവമാണ് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് റാലികൾക്ക് നിയന്ത്രണമു ള്ളതിനാൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവുംതീപാറുകയാണ് തെരഞ്ഞെടുപ്പിൽ പണവും സമ്മാനവും കൊടുത്ത് ചിലർ വോട്ടർമാരെ സ്വാധീ നിക്കുകയാണെന്ന ആക്ഷേപത്തെ തുടർന്ന് തെരങ്ങ്തെടുപ്പ് കമ്മീഷൻ പരിശോ ധന ശക്തമാക്കി

തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രമുഖ ദേശീയ നേതാക്കൾ പ്രചാരണത്തിൽ പങ്കെടുക്കുന്നു

അംഗനവാടികൾ കോളേജൂകൂൾ എന്നിവക്കും ഉത്തരവ് ബാധകമാണെന്ന് ഛത്തീസ്ഗഡ് കൃഷിമന്ത്രി ർപ്പീന്ദ്ര ഛൌബെ പറഞ്ഞു

ബി എസ്

കോവിഡ് പശ്ചാത്തലത്തിലാണ് തീരുമാനം

മുൻഗാമികളുടെ പാരമ്പര്യം പുതിയ കാലഘട്ടത്തിലേക്കുളള വഴി തുറക്കാൻ ബീഹാർ ജനതയ്ക്കു കഴിയട്ടെ എന്ന് രാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു സ്വതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിജിയുടെ ചമ്പാരൻ സത്യാഗ്രഹത്തിന് വേദിയായ ഇടമാണ് ബീഹാറെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

ഗ്രാമത്തിൽ തീവ്രവാദികളുടെ സ്ട്രന്നിധ്യം സംബന്ധിച്ച രഹസ്യാന്വേഷണത്തെ തുടർന്ന് മനിലാലിൽ തെരച്ചിൽ നടത്തവെ സുരക്ഷാസേനക്ക് നേരെ ആക്രമണം ഉണ്ടാകുകയായിരുന്നു

കൊല്ലപ്പെട്ട തീവ്രവാദികളെ തിരിച്ചറിഞ്ഞിട്ടില്ല

തങ്ങളുടെ സമുദ്രാവകാശത്തെ ലംഘിക്കുകയാണെന്നും കപ്പലുകൾ തിരിച്ചു വിളിക്കണമെന്നും ഫിലീപ്പീൻസ് ആവശ്യപ്പെട്ടു ബോട്ടുകൾ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ പ്രതിഷേധം നയതന്ത്രരീതികളിലൂടെ രേഖപ്പെടുത്തുന്നതിൽ മാത്രം ഒതുങ്ങാതെ കർശന നടപടികളെക്കുറിച്ച് ആലോചിക്കുമെന്ന് ഫിലിപ്പൈൻസ് പ്രധാനമന്ത്രി ഡെൽഫിൽ ലോറൻസനാ മുന്നറിയിപ്പ് നൽകി

ശുദ്ധജലത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയാനും ശുദ്ധജല സംരക്ഷണത്തിന് സുസ്ഥിരമായ നൂതന മാർഗങ്ങൾ അവലംബിക്കാനും ലക്ഷ്യമിട്ടാണ് ദിനാചരണം

ലോകം ന്റേരീട്ടുന്ന ശുദ്ധജല പ്രതിസന്ധി ഈ മുദ്രാവാക്യം തന്നെ വിളിച്ചുപറയുന്നു